മെയ് അവസാനത്തോടെ തദ്ദേശീയമായി കോവിഡ് കിറ്റുകൾ വികസിപ്പിക്കും

ലോക്ഡൌണിനെീതുടർന്ന് വിവിധ ഇടങ്ങളിൽ കുടുങ്ങിപ്പോയ ജനങ്ങൾക്ക് മടക്കയാത്ര അനുവദിക്കാൻ സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം

പ്രശസ്ത നടൻ ഇർഫാൻ ഖാന് രാഷ്ട്രത്തിന്റെ അന്തൃാഞ്ജലി അനുശോചനം അറിയിച്ച് പ്രമുഖർ

രോഗമില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ യാത്ര അനുവദിക്കാൻ പാടുള്ളൂ സ്വന്തം സ്ഥലത്തെത്തുന്നവർ ഗൃഹ നിരീക്ഷണത്തിൽ കഴിയണം

ഇതിൽ സാമൂഹിക അകലവും ശുചിത്വവും ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നയിക്കുന്ന സർക്കാർ എല്ലായ്പ്പോഴും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നുവെന്ന് ശ്രീ തോമർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എം

കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും അടിസ്ഥാന് സ്ന്കര്യ വികസനം സംബന്ധിച്ച പൊതു നിർദ്ദേശങ്ങളും മ്മ്ഖ്ലൂ തിരിച്ചുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

കൊല്ലം ജില്ലയിൽ ആറു പേർക്കും കാസർകോട് തിരുവനന്തപുരം ജില്ലകളിൽ രണ്ടുപേർക്ക് വീതമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്

തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ രണ്ടുപേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്

കാസർകോട് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു

അഞ്ച് മാസങ്ങളിലായി പ്രതിമാസം ആറ് ദിവസങ്ങളിലെ ശമ്പളമാണ് മാറ്റിവയ്ക്കുന്നത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവിന് നിയമ പ്രാബല്യം പോരാ എന്ന ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി

രോഗബാധിതർ രണ്ട് ലക്ഷം കവിഞ്ഞു

കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കനത്ത പോലീസ് കാവിട്ടിലായിരുന്നു ഖബറടക്കം വൻകുടലിലെ അണുബാധയെ തുടർക്ക് മുംബൈയിലെ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്ക്യാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം

വൃത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും മറക്കാനാവാത്ത പ്രകടനങ്ങളിലൂടെയും ഇർഫാൻഖാൻ ജനമനസ്സിൽ മായാതെ നിൽക്കുമെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു